സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതാതുരങ്കം അടൽ ടൂണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു സമർപ്പിച്ചു

സാമൂഹ്യ സാമ്പിത്തിക മാറ്റങ്ങളുടെ അടിത്തറയാണ് ശ്യാസ്ത്രമെന്ന് വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് വൈഭവ് ഉച്ചുകോടിയിൽ പ്രധാനമന്ത്രി

സാധാരണനിലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി

ഹിമാചൽ പ്രദേശിലാണ് നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമിച്ച ദേശീയപാതാതുരങ്കം സ്ഥിതിചെയ്യുന്നത്

നേരത്തെ കനത്ത മഞ്ഞ് വീഴ്ച കാരണം വർഷത്തിൽ ആറ് മാസം ഈ താഴ്വരയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു ടണൽ വരുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകും

തുരങ്കത്തിന് എട്ട് കിലോ മീറ്റർ ദൈർഘ്യമൂള്ള സിംഗിൾ ട്യൂബ് ഇരട്ടപാതയാണുള്ളത്

വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് വൈഭവ് ഉച്ചകോടി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യവസായം വിദ്യാഭ്യാസം എന്നിവയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ബഹിരാകാശ പരിഷ് കരണങ്ങൾ ഇന്ത്യ ആരംഭിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി കർഷകരെ സഹായിക്കാൻ ഉന്നത നിലവാരത്തിലുള്ള ശാസ്ത്രീയ ഗവേഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിന്റെ അടിത്തറയാണ് ശാസ്ത്രമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിർമിത ബുദ്ധി റോബോട്ടിക്സ് സെൻസറുകൾ ഡേറ്റ വിശകലനം തുടങ്ങിയ മേഖലകളിലെ ഗവേഷണം ഇന്ത്യൻ സ്റ്റാർട്ട് അപ്പ് മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമാകും

ആണവ നിരായുധീകരണ ദിനവുമായി ബന്ധപ്പെട്ട ഉന്നതതല പ്തീനറി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ബഹുമുഖ രൂപരേഖയിലൂടെ ഘട്ടം ഘട്ടമായി മാത്രമേ ആണവ നിരായുധീകരണം സാധ്യമാവുകയുള്ളൂ എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

നിരോധനം ഇന്ന് മുതൽ പ്രാബലൃത്തിൽ വന്നു

കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം ജില്ലകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ആയിരത്തിന് മുകളിലാണ്

രോഗവ്യാപനത്തിന് ഇടയ്ട്രൂക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഉള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്

സ്കൂൾ പ്രവർത്തനം സാധാരണ നിലയിൽ ആരംഭിക്കാൻ എപ്പോൾ കഴിയുമോ അപ്പോൾ തുടങ്ങും

എല്ലാവരുടെയും സഹകരണത്തോടെ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി കൃത്യതയോടെ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു ഇത്രയും സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പുരോഗതി ഉണ്ടായി എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ കൺമുന്നിൽ വന്ന മാറ്റങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പൊതു വിദ്യാഭ്യാസമന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി

പൊതു വിദ്യാഭ്യാസ രംഗത്ത് വിപ്തവകരമായ മാറ്റമാണ് നടക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു

പദ്ധതിയുടെ ഭാഗമായി ആവശ്യമായ സൌകരൃങ്ങൾ ഗ്രാമപഞ്ചായത്തുകളോ ഉപസമിതികളോ ഏർപ്പാടാക്കുകയോ പരിപാലിക്കുകയോ ചെയ്യണം

ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു

ലോകത്തിന് സാന്ത്വനസ്പർശം ആവശ്യമാണെന്നും അത് ഗാന്ധിയൻ ആശയങ്ങൾ നമുക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിച്ച ഗാന്ധിയും ലോകവും എന്ന വിഷയത്തിലുള്ള അന്താരാഷ്ട്ര വെബിനാറിലാണ് ഉപരാഷ്ട്രപതിയുടെ പരാമർശം

സച്ഛ് ഭാരത് മിഷന്റെ കീഴിലാണ് ശുദ്ധജല ഉപയോഗം ശുചിത്വം കൈകഴുകൽ ബോധവൽക്കരണം എന്നിവ പ്രോത്സാഷ്ട്രിപ്പിക്കുന്നതിനായി കർണാടകയിലെ നബാർഡ് റീജിയണ്ണൽ ഓഫീസിന്റെ കീഴിൽ കാമ്പയിൻ ആരംഭിച്ചത്